തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

മണ്ണാർക്കാട് സഫീറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെ പൊലീസ് അറസ്റ്റ് ചെയ്ത് ആയുധം കണ്ടെടുക്കുകയും ചെയ്തു രണ്ട് കേസുകളിലും സത്യസന്ധമായ രീതിയിൽ ശരിയായ ദിശയിലാണ് അന്വേഷണം മുന്നോട്ടുപോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പിടിയിലായ പ്രതികൾ സിപിഐയുമായി ബന്ധമുള്ളവരാണ്

അതിനാൽ വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

കൊലപാതകം കലയായി വികസിപ്പിച്ചുകൊണ്ടുവരുന്നവരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു